ഇടുക്കി പോലീസ് പരിശോധന ഇൻട്രോ ശ്രീലങ്കയിൽ നിന്നും കടൽമാർഗ്ഗം തമിഴ്നാട്ടിൽ എത്തിയ ഭീകരർ ഇടുക്കി ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിലൂടെ സംസ്ഥാനത്തേക്ക് കടക്കാൻ സാധ്യത എന്ന ഇന്റലിജൻസ് വിഭാഗ റിപ്പോർട്ടിനെ തുടർന്ന് കമ്പംമേട് കുമളി ചെക്ക്പോസ്റ്റുകളിൽ പോലീസ് പരിശോധന ശക്തമാക്കി

രാഹുൽഗാന്ധി രാഹുൽഗാന്ധി എം പി വയനാട്ടിൽ മറ്റെന്നാൾ പ്രളയബാധിത മേഖലകളിൽ സന്ദർശനം നടത്തും മാനന്തവാടി സുൽത്താൻബത്തേരി കൽപ്പറ്റ നിയോജകമണ്ഡലങ്ങളിലെ പ്രളയബാധിത സ്ഥലങ്ങളിലാണ് സന്ദർശനം